സമരം ചെയ്യുന്ന ഡോക്ടർമാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഇന്ന് ചർച്ച നടത്തും

രാവിലെ ആരംഭിച്ച സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്

മധ്യപ്രദേശിൽ നിന്നുള്ള ലോക്സഭാംഗം ഡോ വീരേന്ദ്രകുമാറിനെ പ്രോട്ടം സ്പീക്കറായി തെരഞ്ഞെടുത്തു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഡോ

പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പ്രോട്ടം സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ തുടങ്ങിയവർ പ്രതിജ്ഞ എടുത്തു

പൊതുതാൽപര്യമാണ് പരമ പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായി മാധ്യമുപ്രവർത്തകരോട് പറഞ്ഞു

പുത്തൻ ഉണർവ്വും പുതിയ ആശയങ്ങളുമായാണ് എം പിമാർ പ്രവർത്തനം തുടങ്ങുന്നത് എല്ലാ അംഗങ്ങളെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന് പുറമെ വൃാഴാഴ്ച വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പാർലമെന്റ് അംഗങ്ങളുടെ യോഗവും വിളിച്ചിട്ടുണ്ടെന്ന് പാർലമെന്ററികാരൃമന്ത്രി പ്രഹ്ഗാദ് ജോഷി അറിയിച്ചു

പശ്ചിമ ബംഗാളിൽ ഡോക്ടർമാർ തുടരുന്ന സമരത്തിന് ഐകൃദാർഢൃം പ്രകടിപ്പിച്ചാണ് ഇന്തൃൻ മെഡിക്കൽ അസോസിയേഷൻ രാജൃവൃാപകമായി ഇന്ന് ഏകദിന സമരം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കേരളത്തിലും ഡോക്ടർമാർ പണിമുടക്കുകയാണ്

ജൂനിയർ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്

രാജ്യത്ത് മൂന്നര ലക്ഷത്തോളം ഡോക്ടർമാർ സമരത്തിലാണെന്ന് ഐ എം എ അറിയിച്ചു

അതിനിടെ പശ്ചിമബംഗാളിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്

പ്രകോപനമില്ലാതെയാണ് പാക് സൈന്യം വെടിയുതിർത്തതെന്ന് സൈനിക വക്താവ് അറിയിച്ചു

ഹുറിയത് കോൺഫറൻസ് അടക്കമുള്ള വിഘടനവാദി സംഘടനകളുടെ നേതാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വെളിപ്പെട്ടത് ജമ്മു കശ്മീർ താഴ്വരയിൽ വിഘടനവാദത്തിനുള്ള ആശയ പ്രചരണം നടത്താൻ പാകിസ്ഥാനിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചതായി ഇവരിൽ പലരും വെളിപ്പെടുത്തി ദുക്തറൻ ഇ മിലാദ് സംഘടനയുടെ നേതാവായ ആസിയ ആൻദ്രാബിയുടെ മകന്റെ മലേഷ്യയിലുള്ള പഠനത്തിന്റെ ചെലവ് വഹിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായ വിഘടനവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണെന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും

യോഗഗുരുക്കൾ വിവിധ യോഗ സംഘടനാ പ്രതിനിധികൾ നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ എന്നിവർ റാഞ്ചിയിലെ പരിപാടിയിൽ പങ്കെടുക്കും യോഗ പ്രോത്സാഹിപ്പിച്ചതിനുള്ള പ്രധാനമന്ത്രിയുടെ യോഗ പുരസ്കാരങ്ങൾ ശ്രീ നരേന്ദ്രമോദി ചടങ്ങിൽ സമ്മാനിക്കും

ന്യൂഡൽഹിയിൽ രാജ്പഥിലാണ് പ്രധാന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പരിസ്ഥിതി സാഹൃദ ഉൽപ്പന്നങ്ങളാണ് യോഗയ്ക്ക് ഉപയോഗിക്കുന്നത്

അതിനെ തുടർന്ന് ലോകമെമ്പാടും അത്യൂൽസാഹത്തോടെയാണ് യോഗ പരിശീലിക്കുന്നത്

യോഗയ്ക്ക് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്ന് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി ഹർഷ് വർധൻ ശൃംഗ്ല പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റിന്റെ ഫലപ്രിദ്മ്ടുയ് ഇടപെടലിനെ തുടർന്ന് സംസ്ഥാനത്ത് പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലപിടിച്ചുനിർത്താൻ കഴിഞ്ഞതായി മന്ത്രി പി

മന്ത്രി തിലോത്തമൻ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു

വായു ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ അറബിക്കടലിൽ നിന്ന് ശക്തമായ കാറ്റ് വീശും

രോഹിത് ശർമ്മയുടെ സെഞ്ചറിയും വിരാട് കോഹ്ലിയുടെയും ലോകേഷ് രാഹുലിന്റെയും മികച്ച ബാറ്റിംഗും ബൌളിങ് നിരയുടെ ശക്തമായ പ്രകടനവും കൂടിചേർന്നാണ് ഇന്തൃയ്ക്ക് വിജയം സമ്മാനിച്ചത്

ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയെ രാജ്യാന്തര തലത്തിലുള്ള മികച്ചു ആശുപത്രിയാട്യി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് വീണ്ടും ചാലക്കുടിക്ക് ഈ നേട്ടം കരസ്ഥമാക്കാനായത്

മൈത്രി സേതുവിലൂടെ ഇന്ത്യയും ബംഗ്ലദേശും തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ കൂടുതൽ സജീവമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു

പരമ്പരാഗതമായ തീർത്ഥയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ഒരു മാസം നീളുന്ന രഥയാത്രാമഹോൽസവത്തിനാണ് ഭക്തിനിർഭര ചടങ്ങുകളോടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്